മണ്ഡല മകരവിളക്ക് കാലത്ത് ഏർപ്പെടുത്തേണ്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനത്ത് അവലോകന യോഗം തുടങ്ങി

പ്രളയനാശം നേരിട്ട കേരളത്തിന്റെ പുനർനിർമാണത്തിന് പ്രവാസികളുടെ സഹായംതേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു

ഇയിലെത്തി ഇന്ന് പു ലർച്ചെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് യാത്രതിരിച്ചത് പ്രവാസി വ്യ വസായികളുമായി ഇന്ന് പിണറായി കൂടിക്കാഴ്ച നടത്തും ദുബായ് ഷാർജ എന്നിവിടങ്ങളിലും മലയാളി സമൂഹങ്ങളുമായും അദ്ദേഹം സംവദിക്കും ഞാ യറാഴ്ച മുഖ്യമന്ത്രി തിരിച്ചെത്തും

കേന്ദ്രാനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാ ണ് യാത്ര റദ്ദാക്കിയത് തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറ ക്കും തന്ത്രി കണ്ടരര് രാജീവരും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്ന് നടതുറന്ന് ദീപം തെളിയിക്കും ഇന്ന് പൂജകൾ ഉണ്ടാവില്ല നാളെ രാവി ലെ പതിവ് പൂജകളും നെയ്യഭിഷേകവും ഗണപതിഹോമവും നടക്കും ഉഷപൂ ജയ്ക്ക് ശേഷം ശബരിമലയിലെ മേൽശാന്തിയെ തെരഞ്ഞെടുക്കും അഭിമുഖ ത്തെ തുടർന്ന് പട്ടികയിൽ ഇടം നേടിയ ഒമ്പത് ശാന്തിമാരിൽ നിന്നാണ് പുതി യ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാൻ നറുക്കെടുപ്പ് നത്തുക തുടർന്ന് മാളിക പ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുക്കും വൃശ്ചികം ഒന്നിന് ശബരിമല തുറക്കു ന്നത് പുതിയ മേൽശാന്തിമാരായിരിക്കും അഞ്ച് ദിവസത്തെ തുലാം മാസത്തെ പൂർത്തിയാക്കി നട തിങ്കളാഴ്ച രാത്രി അടയ്ക്കും ശബരിമല അവലോകനയോഗം സന്നിധാനത്ത് തുടങ്ങി മണ്ഡല മകര വി ളക്ക് കാലത്ത് ഏർപ്പെടുത്തേണ്ട സൌകര്യങ്ങളും ഒരുക്കങ്ങളും വിലയിരുത്താ നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ ്യോഗം ചേരുന്നത് വനിതാ ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശബരിമലയിലേക്ക് ആർക്കും പോകാവുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു നിയമം കൈ യ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലു

അതിന് ശ്രമിക്കുന്നവർക്കെതിരെ കേസെടുക്കു മെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു നിയമവാഴ്ച ഉറപ്പാക്കുകയെ ന്ന ഉത്തരവാദിത്വം പൊലീസിനുണ്ടെന്നും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കു ന്നവരെ നേരിടുമെന്നും ബെഹ്റ വൃക്തമാക്കി ശബരമിലയിലേക്ക് പോകാനെത്തിയ യുവതിയെ പത്തനംതിട്ട ബസ്റ്റാന്റിൽ ജനക്കൂട്ടം തടഞ്ഞു ചേർത്തല സ്വദേശി ലിബിയാണ് പമ്പയിലേക്ക് പോകാൻ പത്തനംതിട്ട ബസ്റ്റാന്റിലെത്തിയത്

ഇവരെ പൊലിസ് വാഹനത്തിൽ പമ്പയിലെത്തിച്ചേക്കുമെന്നാണ് സൂ ചന

അതെസമയം താൻ നിരീശ്വരവാദിയാണെന്നും ശബരിമലയ്ക്ക് പോകാൻ ആഗ്രമുണ്ടായിട്ടല്ല ജനാധിപത്യ താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാ ണ് സന്നിധാനത്തേക്ക് പോവുന്നതെന്നും ലിബി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറ ഞ്ഞു ഇന്ന് ഉച്ചയോടെ പൊലിസ് സഹായത്തോടെ മല ചവിട്ടുമെന്നും ലിബി വൃക്തമാക്കി ശബരിമലയിൽ ദർശനത്തിന് മലകയറാനെത്തിയ ആന്ധ്രയിൽ നിന്നെത്തി യ കുടുംബത്തിലെ യുവതിയെ പ്രതിഷേധക്കാർ തടഞ്ഞ് തിരിച്ചയച്ചു പ്രായ മായ മാതാപിതാക്കൾക്കും കൂട്ടികൾക്കുമൊപ്പം എത്തിയ മാധവിയെന്ന നാൽ പതുകാരിക്കാണ് മടങ്ങേണ്ടി വന്നത് പമ്പയിൽ നിന്ന് പൊലിസ് വലയത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ അൽപദൂരം മുന്നോട്ട് പോയ സംഘത്തെ പ്രതി ഷേധക്കാർ പിന്നീട് തടയുകയായിരുന്നു ഇതെതുടർന്ന് അവർ ദർശനത്തിന് ശ്രമിക്കാതെ പിന്തിരിഞ്ഞു ശബരിമല വിഷയത്തിൽ സൂപ്രിംകോടതി വിധി അവസാന വാക്കല്ലെന്ന് കെ

സി സി വർക്കിങ്പ്രസിഡന്റ് കെ

പൊലി സുദ്യോഗസ്ഥരും മുതിർന്ന ഉദ്യോഗസ്ഥരും പക്വതിയോടെ തീരുമാനമെടുത്തി ല്ലെങ്കിൽ തീക്കൊള്ളികൊണ്ട് തല ചൊറിയുന്ന അനുഭവം ഉണ്ടാകുമെന്ന് അ ദ്ദേഹം മുന്നറിയിപ്പ് നൽകി നിലയ്ക്കലിൽ പത്തനംതിട്ട് ജില്ലാ കോൺഗ്രസ് ക മ്മിറ്റി സംഘടിപ്പിച്ച പ്രാർത്ഥനായജ്ഞം ഉദ്ഘാട്ടനം ചെയ്യുകയായിരുന്നു സു ധാകരൻ ശബരിമല പ്രശ്നത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയാടിസ്ഥാനത്തിലല്ലെന്ന് നേ രത്തെ അദ്ദേഹം വൃക്തമാക്കിയിരുന്നു വിശ്വാസം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന വരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് സമരമെന്നും സുധാകരൻ പറ ഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ രാഷ്ട്രീയ പ്ര ശ്നമാക്കി മാറ്റാൻ ഉദ്ദേശമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകു മാർ പറഞ്ഞു

മറ്റന്നാളത്തെ യോഗത്തിൽ ഇക്കാര്യം വിശദമായി ആലോചിക്കുമെന്നും അദ്ദേ ഹം സന്നിധാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ നിലയ്ക്കലിലും പമ്പയിലും പ്രതിഷേധ പരിപാടികൾ സംഘടി പ്പിച്ച പന്തളം രാജകുടുംബാംഗങ്ങളെയും തന്ത്രി കുടുംബാംഗങ്ങളെയും പോ ലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമാധാനപരമായി പ്രതിഷേധിച്ചവരെ അകാര ണമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി

പിയുടെയും പ്രതിഷേധം തുടരുന്നു പാർട്ടി സംസ്ഥാ ന നേതാക്കളായ എം ടി രമേശിന്റെയും ശോഭാസുരേന്ദ്രന്റെയും കെ സുരേ ന്ദ്രന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം വരും ദിവസങ്ങളിലും പ്രതിഷേധ വുമായി രംഗത്തുണ്ടാവുമെന്ന് എം ടി രമേശ് പറഞ്ഞു ആചാരങ്ങൾ പാലിക്കപ്പെടാത്തിൽ വിഷമമുണ്ടെന്ന് മാളികപ്പുറം മേൽശാ ന്തി അനീഷ് നമ്പൂതിരി പറഞ്ഞു സ്ത്രീപ്രവേശനത്തിനുമുമ്പ് മതപണ്ഡിതരു മായും ആചാര്യന്മാരുമായും ചർച്ച നടത്തണമായിരുന്നുവെന്നും മേൽശാന്തി പറഞ്ഞു

നില യ്ക്കലിൽ സ്വകാര്യ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

റിപ്പബ്ലിക് ചാനൽ പ്രവർത്തക എത്തിയ വാഹനം പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു പമ്പുവരെ വാഹനത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടതി നെ തുടർന്നാണ് ആൾകൂട്ടം വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചുതകർത്തത് ശബരിമലയിൽ പൊലിസിന്റെ ആത്മസംയമനം ബലഹീനതയായി കാണേ ണ്ടതില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ കോൺഗ്രസും ബി

പിയും ശ്ര മിക്കുകയാണെന്ന് അദ്ദേഹം കൂറ്റപ്പെടുത്തി ഇരു പാർട്ടികളും കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷ യത്തിൽ കണ്ണൂരിൽ സി

ഐ എം സംഘടിപ്പിച്ച വിശദീകരണ യോഗം ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി നിലയ്ക്കലിൽ കെ സുധാകരന്റെ ഉപവാസം വൻതമാശയാണെന്ന് മന്ത്രി ഇ

കോൺഗ്രസിൽ ഓരോരുത്തർക്കും തോന്നിയപോലെ പ്ര വർത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ പ്രതിഷേധക്കാരുടെ നടപടി അയ്യപ്പദോഷമെന്നും അതിന്റെ ഫലം അവർ അനുഭവിക്കുമെന്നും ജയ രാജൻ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു അതെസമയം ശബരിമലയെ കലാപ ഭൂമിയാക്കരുതെന്ന് മന്ത്രി കെ

അയ്യപ്പന് സ്ത്രീ പു രുഷ ഭേദമില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ സമരം ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും പൊ ലിസിന് ബാധ്യതയുണ്ടെന്ന് ബി

പി നേതാവ് ശോഭാസുരേന്ദ്രൻ പറഞ്ഞു പന്തൽകെട്ടി സമരം ചെയ്ത ഭക്തരെ ലാത്തിച്ചാർജ് ചെയ്യാൻ ഐ ജി മനോജ് എബ്രഹാമിന് ആരാണ് അധികാരം നൽകിയതെന്നും നിലയ്ക്കലിൽ ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ശബരിമലയിലേക്ക് യുവതികൾ എത്തിയാൽ ഇനിനമുതൽ സന്നിധാനത്തേ ക്കില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ റഞ്ഞു ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ യഥാർത്ഥ വിശ്വാസികൾ ഭരണത്തി ലെത്തിയ ശേഷമേ ദർശനത്തിന് പോകുകയുള്ളൂ വിശ്വാസ സംരക്ഷണത്തി നായി ജീവത്യാഗത്തിന് വരെ തയാറായാണ് ശബരിമലയിലേക്ക് പോകുന്നതെ ന്നും അദ്ദേഹം നിലയ്ക്കലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

രഹസ്യ വിവരത്തെ തുടർന്ന് സൈന്യം തിരച്ചിൽ നട ത്തുന്നതിനിടെ ഭീകരർ അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു

സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മേഖലയിലെ വി ദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി

രാജ്യത്തെ യുവജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ ആ ര്യ പദ്ധതി കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കി വരുന്നതായി കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി രാധ മോഹൻസിംഗ് പറഞ്ഞു ഇതുവഴി യുവാ ക്കൾക്ക് ബിരുദതലത്തിൽ നൈപുണ്യ വികസന ഇന്റേൺഷിപ്പ് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു വിത്ത് തൈ ഉല്പാദനം ഭക്ഷ്യസംസ്കരണം വെറ്ററിന റി കോഴിവളർത്തൽ മത്സ്യഉല്പാദനം ജൈവ ഉല്പന്നങ്ങൾ ബയോപ്ലാസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ തുടക്കക്കാർക്ക് വലിയ സാധൃതയുണ്ടാകുമെന്നും രാ ധ മോഹൻസിംഗ് പറഞ്ഞു ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹി യിൽ സംഘടിപ്പിച്ച അഗ്രി സ്റ്റാർട്ടപ്പ് ആന്റ് എന്റർപ്രണർഷിപ്പ് കോൺക്ലേവി ന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ പയ്യന്നൂരിനടുത്ത് എടാട്ട് പുലർച്ചെ ടാങ്കർ ലോറിയും കാറും കൂട്ടി യിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ നാലായി തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശികളായ ബിന്ദുലാൽ ഐശ്ചര്യ തരുൺ ദിയ എന്നിവരാണ് മരിച്ചത് പ രിക്കേറ്റ നാല് പേർ പരിയാരം മെഡിക്കൽ കോളജിൽ ചികിത്സയിലാണ് മൂ കാംബികയിലേക്ക് ക്ഷേത്രദർശനത്തിന് പോവുകയായിരുന്ന സംഘത്തിന്റെ കാർ മംഗലാപുരത്ത് നിന്ന് വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഡൽഹി ഡൈനാമോസ് ഇന്ന് എ ടി കെയെ നേരിടും

നവകേരള നിർമിതിയിൽ യുവജനങ്ങളെ പങ്കാളികളാക്കുന്ന കേരള ഗവൺ മെന്റിന്റെ മൈ കേരള പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ജാലവിദ്യാ പ്രകടനത്തോടെയാണ് പദ്ധതി തുടങ്ങി യത് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു

ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരി ഗണിക്കുന്നത് പ്രധാനമന്ത്രി ജൻആരോഗൃയോജന പദ്ധതി ആരോഗൃ ഇൻഷുറൻസ് മേഖ ലയിൽ പത്ത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആയുഷ്മാൻഭാര ത് സി

ഒ ഇന്ദുഭൂഷൺ പറഞ്ഞു പദ്ധതി പൊതു സ്വകാരൃ രംഗങ്ങളിലെ ആ രോഗൃസംരക്ഷണത്തിന്റെ ഗൂണനിലവാരം വർധിപ്പിക്കും വളരുന്ന മറ്റ് സമ്പ ദ്വ്യവസ്ഥകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആരോഗ്യർംഗത്ത് ഇന്ത്യയുടെ ചിലവ് കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ മാൻ ബുക്കർ പുരസ്കാരം വടക്കൻ ഐറിഷ് എഴുത്തുകാ രി അന്നാ ബേൺസിന് സമ്മാനിച്ചു